കുമ്മനം രാജശേഖരൻ ഗവർണർ സ്ഥാനമൊഴിഞ്ഞ് തിരുവന്തപുരത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കുമെന്ന് റിപ്പോർട്ടുകൾ

അസമിൽ ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ നിർമ്മിച്ച ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ റോഡ് പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും

പാലത്തിലൂടെ കടന്നുപോകുന്ന ആദ്യ ട്രെയിനും അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്യും

മുൻ പ്രധാനമന്ത്രി എ

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി വെങ്കയ്യനായിഡു പ്രധാനമന്ത്രി നരേ മുൻപ്രധാനമന്ത്രി ഡോ

അദ്ദേഹത്തിന്റെ ഭൌതിക ശരീരം സംസ്കരിച്ച രാഷ്ട്രീയ സ്മൃതി സ്ഥലിന് സമീപത്താണ് സ്മാരകം നിർമ്മിച്ചത് തെരഞ്ഞെടുപ്പിന്മുൻപ് ഫെഡറൽ മുന്നണി നീക്കങ്ങൾ പ്രായോഗി കമല്ലെന്ന് സിപി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി

അയോധ്യ ഭൂമി ഉടമസ്ഥതാ കേസ് സുപ്രീംകോടതി അടുത്തമാസം നാലിന് പരിഗണിക്കും

തർക്കഭൂമി മൂന്നായി വിഭജിച്ച് നിർമോഹി അഖാര സുന്നി വഖഫ് ബോർഡ് രാംലാല എന്നി വയ്ക്ക് കൈമാറണമെന്നായിരുന്നു അലഹബാദ് ഹൈക്കോടതി വിധി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി കൾ പരിഗണിക്കുക

പ്രസരണ വിതരണ രംഗത്തെ നഷ്ടം പരമാ വധി കുറക്കാനുദ്ദേശിച്ചാണ് നടപടിയെന്ന് വൈദ്യുതി മന്ത്രാലയം ഡൽഹി യിൽ അറിയിച്ചു സാധാരണക്കാർക്ക് ഒറ്റയടിക്ക് പണമടക്കാതെ ആവശൃം അനുസരിച്ച് റീച്ചാർജ് ചെയ്ത് വൈദ്യുതി ഉപയോഗിക്കാനും ഈ സംവി ധാനം സഹായകമാകുമെന്ന് അറിയിപ്പിൽ പറയുന്നു മിസോറാം ഗവർണർസ്ഥാനമൊഴിഞ്ഞ് കുമ്മനം രാജശേഖരൻ തിരു വനന്തപുരത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കുമെന്ന് മാധ്യ മറിപ്പോർട്ടുകൾ കുമ്മനം സജീവ രാഷ്ട്രീയത്തിൽ മടങ്ങിവരണമെന്നും പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നും ബിജെപി പ്രവർത്തകർ ആഗ്രഹിക്കുന്നതായി സംസ്ഥാന വക്താവ് എം എസ് കുമാർ ഒരു സ്ഥകാര്യ ചാനലിനോട് പറഞ്ഞു ശബരിമല യുവതീ പ്രവേശം രാഷ്ട്രീയ പ്രശ്ന മായി മാറിയ സാഹചര്യത്തിൽ കുമ്മനത്തിന്റെ തിരിച്ചുവരവ് പ്രയോജന പ്പെട്ടേക്കുമെന്നാണ് വിലയിരുത്തൽ കോഴിക്കോട് തൊണ്ടയാട് രാമനാട്ടുകര മേൽപ്പാലങ്ങൾ അടുത്ത വെള്ളിയാഴ്ച രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പി ക്കുമെന്ന് മന്ത്രി ജി സുധാകരൻ തിരുവനന്തപുരത്ത് അറിയിച്ചു

ദേശീയപാതാ അതോ റിറ്റി മറ്റൊരു മൂന്നുവരി മേൽപ്പാലം കൂടി തൊണ്ടയാട് നിർമ്മിക്കുമെന്ന് മന്ത്രി വെളിപ്പെടുത്തി

രണ്ട് ഫ്ളൈ ഓവറുകളും റെക്കോർഡ് സമയത്തിനുള്ളിൽ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റ് സൊസൈറ്റിയാണ് നിർമ്മിച്ചത് മണ്ഡല പൂജക്ക് രണ്ട് ദിവസം ശേഷിക്കെ ശബരിമലയിൽ വൻതീർത്ഥാടകത്തിരക്ക് സന്നിധാനത്തെ തിരക്ക് നിയന്ത്രിക്കാൻ പമ്പയിൽനിന്ന് ഘട്ടങ്ങളായാണ് അയ്യപ്പന്മാരെ കയറ്റിവിടുന്നത് നിലയ്ക്ക ലിൽനിന്ന് പമ്പയിലേക്ക് കെ എസ് ആർ ടി

മണ്ഡല പൂജയ്ക്ക് അയ്യപ്പവിഗ്രഹത്തിൽ ചാർത്തുന്ന തങ്കയങ്കിയു മായി ആറൻമുളയിൽ നിന്ന് പുറപ്പെട്ട ഘോഷയാത്ര രാവിലെ കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിൽ നിന്ന് മൂന്നാം ദിവസത്തെ പ്രയാണം ആരം ഭിച്ചു

ശബരിമലയിൽ പൊലീസ് സുരക്ഷ ശക്തമാക്കി നിലയ്ക്കലിൽ രാവിലെ വൻ ഗതാഗതക്കുരുക്കാണ് ഉണ്ടായത്

മീറ്ററോളം ദൂരത്തിൽ ഗതാഗതക്കുരുക്ക് രൂപപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്

പാർട്ടി സംസ്ഥാന ജന റൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രനാണ് കഴിഞ്ഞ ആറ് ദിവസമായി സത്യ ഗ്രഹം അനുഷ്ഠിക്കുന്നത് പതിനായിരക്കണക്കിന് തീർത്ഥാടകർ കുളിക്കുന്ന പമ്പാനദിയിലെ വെള്ളം അപകടകരമായ രീതിയിൽ മലിനമാണെന്ന് ജല അതോറിറ്റി പരി ശോധനയിൽ കണ്ടെത്തി

കെഎസ്ആർടിസിയിൽ എം പാനൽ ജീവനക്കാരെ പിരിച്ചു വിട്ടതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധി ഇന്നും തുടരുന്നു

ക്രിസ്തുമസിന് സ്ഥിരം കണ്ടക്ടർമാർ അവധി യിൽ പോയതാണ് ഇന്നലെ കൂടുതൽ സർവ്വീസ് മുടങ്ങാൻ കാരണമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു

തിരുപ്പിറവിയുടെ ദൈവസ്നേഹത്തെ വാഴ്ത്തി ക്രൈസ്തവർ ഇന്ന് ക്രിസ്തുമസ് ആഘോഷിക്കുന്നു മനുഷ്യ രാശിയെ രക്ഷയിലേക്കും വിശ്വാസത്തിലേക്കും നയിക്കാൻ ദൈവപുത്രൻ മണ്ണിൽ പിറന്നുവീണ ക്രിസ്തുമസ് രാവിനെ അനുസ്മരിക്കാൻ ദേവാലയങ്ങളിൽ പ്രത്യേക തിരു കർമ്മങ്ങളും പാതിരാകുർബാനയും നടന്നു വീടുകളിലും പള്ളികളിലും പുൽക്കൂടുകളിൽ ഉണ്ണീശോയുടെ ജനനം പ്രതീകാത്മകമായി ഒരുക്കിയ ിരുന്നു ഉപഭോഗ തൃഷ്ണയിൽ നിന്ന് മാറി പങ്കുവെക്കലും കൈമാറലും ജീവി തത്തിന്റെ ഭാഗമാക്കി മാറ്റണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ക്രിസ്മസ് സന്ദേ ശത്തിൽ ്പറഞ്ഞു ആഡംബരം വെടിഞ്ഞ് ലളിത ജീവിതം നയിക്കാൻ എല്ലാവരും തയ്യാറാകണം റോമിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി സംസാരിക്കുകയായിരുന്നു മാർപ്പാ പ്പ ലോകത്തെ വലിയൊരു പങ്ക് പട്ടിണിപ്പാവങ്ങളായി ശേഷിക്കുമ്പോൾ ചെറിയൊരു വിഭാഗം ആഡംബരത്തിൽ മുഴുകി ജീവിക്കുന്നത് ദൌർഭാഗൃ ക ര മാ ണെന്ന് അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്തെ ദേവാലയങ്ങളിൽ തിരുപ്പിറവി പ്രത്യേക ചടങ്ങുകൾ നടന്നു കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിൽ ബിഷപ്പ് വർഗ്ഗീസ് ചക്കാ ലക്കൽ താമരശ്ശേരി മേരി മാതാ കത്തീഡ്രലിൽ ബിഷപ്പ് മാർ റമീജിയസ് ഇഞ്ചനാനിയലും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി കണ്ണൂർ ബർണ്ണശ്ശേരി ഹോളി ട്രിനിറ്റി ദേവാലയത്തിൽ ബിഷപ്പ് അലക്സ് വടക്കുംതലയും തിരു വനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ മലങ്കര കത്തോലിക്കാ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദ്ദിനാൾ മാർ ബസേലിയസ് ക്ലീമിസ കാതോ ലിക്കാ ബാവയും പാളയം സെന്റ് ജോസഫ്സ് കത്തീഡ്രലിൽ ആർച്ച് ബിഷപ്പ് ഡോ സൂസേപാക്യവും കൊച്ചി സെന്റ് മേരീസ് കത്തീഡ്രലിൽ സീറോ മലബാർസഭ ആർച്ച്ബിഷപ്പ് കർദ്ദിനാൾ മാർ ജോർജ്ജ് ആലഞ്ചേരിയും തിരുപ്പിറവി ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിച്ചു മെൽബണിൽ ഇന്ത്യ ഓസ്ട്രേലിയ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റ് നാളെ ആരംഭിക്കും ഇന്ത്യൻ സമയം രാവിലെ അഞ്ചിന് മത്സരം തുടങ്ങും കഴിഞ്ഞ രണ്ട് ടെസ്റ്റുകളിൽ ഇരു ടീമുകളും ഓരോ വിജയം നേടിയിട്ടു ണ്ട് കണ്ണൂർ മാങ്ങാട്ട് പറമ്പിലെ ഇ

നായനാർ സ്മാരക സ്ത്രീകളു ടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ പുതിയ പദ്ധതികൾക്ക് തുടക്ക മായി

വന്ധ്യതാ നിവാരണ കേന്ദ്രം നിർമ്മാണ പ്രവൃത്തിയും ലിഫ്റ്റുകളുടെ പ്രവർത്തനവും മന്ത്രി ഉദ്ഘാടനം ചെയ്തു ലോക ചരിത്രത്തിൽ ഇടം നേടുന്ന് സാമൂഹ്യ മുന്നേറ്റമായി വനിതാ മതിൽ മാറുമെന്ന് നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി കൺവീനർ പുന്നല ശ്രീകുമാർ തിരുവനന്തപുരത്ത് പറഞ്ഞു യാഥാസ്ഥിതികരും പരിഷ്ക്കരണവാദികളും തമ്മിൽ നടക്കുന്ന ആശയ പോരാട്ടമാകും വനിതാ മതിലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു

അംഗൻവാടിക ളിൽ ഏകീകൃത സംവിധാനം നടപ്പാക്കാൻ ഗവൺമെന്റ് ശ്രമിച്ചുവരിക യാണെന്നും മന്ത്രി അറിയിച്ചു

മുന്ന ണിയുടെ കാസർകോട്ട് ചേർന്ന കൺവെൻഷൻ സാമൂഹ്യ പ്രവർത്തക ദയാബായി ഉദ്ഘാടനം ചെയ്തു ദുരിതബാധിതർ ഇനിയും ചികിത്സകി ട്ടാതെ മരിക്കുന്ന സാഹചര്യം ഉണ്ടാകരുതെന്നും അമ്മമാർ തെരുവിലിറ ങ്ങേണ്ടി വരുന്നത് ഒഴിവാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു കണ്ണൂർ ജില്ലാ ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി നിലവാരത്തിലേക്ക് ഉയർത്തുന്ന പ്രവൃത്തികൾ ഒന്നര വർഷത്തിനകം പൂർത്തിയാക്കുമെന്ന് മന്ത്രി കെ

ശൈലജ പറഞ്ഞു

നെയ്യാറ്റിൻകരയിൽ കൊല്ലപ്പെട്ട സനൽകുമാറിന്റെ ഭാര്യയും അമ്മയും സെക്രട്ടറിയേറ്റിന് മുന്നിൽ പട്ടിണി സമര് തുടങ്ങി ജോലി ഉൾപ്പെടെ വാഗ്ദാനങ്ങൾ ഗവൺമെന്റ് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സമ രം സമരപ്പന്തൽ സുരേഷ്ഗോപി എം

സന്ദർശിച്ചു ജപ്തി നോട്ടീസ് വന്ന വനിതാ വികസന കോർപ്പറേഷന്റെ മൂന്ന് ലക്ഷം രൂപയുടെ വായ്പ തിരിച്ചടയ്ക്കാമെന്ന് സുരേഷ്ഗോപി വാഗ്ദാനം ചെയ്തു എടവണ്ണയ്ക്കടുത്ത് വീടിന്റെ സംരക്ഷണഭിത്തി കെട്ടുന്നതിനിടെ മണ്ണി ടിഞ്ഞ് തൊഴിലാളി മരിച്ചു

പരിക്കേറ്റ രാഗേഷിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു

എരഞ്ഞിക്കൽ വാട്സപ്പ് കൂട്ടായ്മയും പേയ്സും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ദുരന്തനിവാരണ പരിശീലന പ്രദർശനം ഇന്ന് ഉച്ചക ഴിഞ്ഞ് നാട്ടൊരുമ ഗ്രൌണ്ടിൽ ജില്ലാകലക്ടർ ശ്രീറാം സാംബശിവറാവു ഉദ്ഘാടനം ചെയ്യും